കോവിഡ് വാക്സിൻ ലഭ്യത വർദ്ധിപ്പിക്കാനും വാക്സിൻ ഏറ്റവും ്ന ആർഹരായവരിലേക്ക് ആദ്യാ എത്തിക്കാനുമാണ് ് പ്രഥമ പരിഗണനയെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ

കോവിഡ് ബാധിതരിലെ ഫംഗസ് അണുബാന നിയന്ത്രണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു

കേരളത്തിൽ നിയന്ത്രണങ്ങളും പരിശോധനകളും ശക്തിപ്പെടുത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി സത്യവാംങ്മൂലം ദുരുപയോഗം ചെയ്താൽ കർശന നടപടി

സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാർവ് ം വൃക്തമാക്കിയത്

വാക ്സിനുകളുടെ വില ഈടക്കുന്നത് സംബന്ധിച്ചും ആഭ്യന്തര അന്താരാഷ്ട്ര സ്ഥിതിഗതികൾ വിലയിരുത്തിയുമുള്ള നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്

അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ ക്രദേശങ്ങൾക്കും ഒൻപത് ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ കൂടി കേന്ദ്രസർക്കാർ അയയ്ക്കും

ശരിയായ ചികിത്സ ലഭിക്കാത്ത സാഹചര്യത്തിൽ അണുബാധ ഗുരുതരമായേക്കാം

കണ്ണിനും മൂക്കിനും ചുറ്റുമുള്ള ചുവപ്പുനിറം പനിതലവേദന ചുമ ശാസതടസ്സം രക്തം കലർന്ന ച്ഛർദി മാനസിക നിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയാണ് അണുബാധയുടെ രോഗ ലക്ഷണങ്ങൾ

ഇതിനായി ദ്രവീകൃതി ഓക്സിജനും മെഡിക്കൽ ഉപകരണങ്ങളും വൻത്രോതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിക്കുന്നു

റഷ്യയിൽ നിന്നും നേരിട്ടുള്ള വിദേശ നിക്ഷേപ ഫണ്ടും രാജ്യത്തെ പ്രാദേശിക കമ്പനികളും സംയുക്തമായി വൻതോതിൽ വാക ്സിൻ ഉത്പാദിപ്പിക്കാൻ തീരുമാനമായതായും അദ്ദേഹം അറിയിച്ചു

നാവിക്സേനയുടെ കൊൽക്കട്ട കൊച്ചി തബാർ തൃകൻഡ് ജലാശ്ച ഐരാവത് എന്നീ കപ്പലുകൾ ദ്രവീകൃത മെഡിക്കൽ ഓക്സിജൻ കണ്ടെയ്നറുകൾ ക്രയോജിനിക് കണ്ടെയ്നറുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നീര്യ് വിവിധ ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും എത്തിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

തമിഴ് നാട്ടിൽ കഴിഞ്ഞയാഴ്ച പുതിയ കോവിഡ് കേസുകളിൽ വലിയ വർധനവാണുണ്ടായത്

വളരെ അത്യാവശ്യഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് ് മാത്രമേ പോലീസിന്റെ ഓൺലൈൻ ഇ പാസിന് അപേക്ഷിക്കാവൂവെന്നും അദ്ദേഹം നിർദേശിച്ചു

മരുന്ന് ഭക്ഷൃവസ്തുക്കൾ വാങ്ങൽ മുതലായ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് സത്യവാംഗ്മൂലം മതിയാകും

എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും സൈക്കോ സോഷ്യൽ കൌൺസലർമാരുടെ ഗ്രൂപ്പ് രൂപവത്കരിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇവർക്ക് ച്ച്രിശ്രീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു

മണ്ഡലത്തിലെ എല്ലാ പ്പാർഡുകളിലും പൾസ് ഓക്സിമീറ്റർ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു

പുതിയ ഓക്സിജൻ പ്ലാന്റുകൾക്കായുള്ള ഉപകരണങ്ങൾ ഉടൻ ലഡാക്കിൽ എത്തും ഈ മൂന്ന് ഓക്സിജൻ പ്ലാന്റുകൾക്ക് പുറമെ കാർഗിലിൽ ഒരു ഓക ്സിജൻ പ്ലാന്റ് സ്ഥാപിക്കും

ക്കൊവിഡ് പ്രതിരോധം സൌകര്യങ്ങൾ അവശ്യ ഉപകുര്ണങ്ങൾ വാങ്ങൽ മരുന്നുകൾ എന്നിവയ്ക്കായി ആരോഗ്ഗ്യപ്പകു്പ്പിന്റെ തയ്യാറെടുപ്പ് ലഡാക്ക് ലെഫ്റ്റനന്റ് ഗവർണ്ണർ ആർ കെ മാത്തൂർ അവലോകനം ചെയ്തു

കോവിഡ് ചെയ്ത് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്ന ചടങ്ങിൽ സമീപ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ബി ജെ പി നേതാക്കളും പങ്കെടുക്കും ഗുവാഹത്തിയിൽ ഇന്നലെ ചേർന്ന നിയമസഭാ യോഗത്തിലാണ് ഹിമന്തയെ മുഖ്യമന്ത്രിയായി കക്ഷി തെരഞ്ഞെടുത്തത്

ഡൽഹിയിലെ വിവിധ ഭക്ഷണശാലകളിൽ നിന്നും അഞ്ഞൂറിലധികം ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഒളിവിൽ കഴിയുന്ന നവനീതിനെതിരെ ക്രൈംബ്രാഞ്ച് തിരച്ചിൽ തുടരുന്നു

പെട്രോൾ ഡീസൽ വിലയിൽ വർധന

സ്വർണ വിലയിൽ മാറ്റമില്ല

ഇന്ത്യ ശ്രീലങ്ക പരമ്പരയിൽ പുതുമുഖ താരങ്ങൾക്കാകും അവസരം നൽകുന്നതെന്ന് ബി സി സി ഐ അധ്യക്ഷൻ സൌരവ് ഗാംഗുലി അറിയിച്ചു